ലോകത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൌഹൃദ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അടിയന്തരാവസ്ഥാ പ്രഖ്യാപ്പന്ത്തിന്റെ ഓർമ്മയിൽ ബി ജെ പി രാജ്യമെങ്ങും ഇന്ന് കരിദിനം ആചരിച്ചു

മയക്കു മരുന്നിന് അടിമപ്പെടുന്നത് ദേശീയ സുരക്ഷയ്ക്കും പൊതുക്ഷേമ പദ്ധതികൾക്കും എതിരെ വെല്ലുവിളി ഉയർത്തുന്നതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നാല് മത്സരങ്ങൾ ഓസ്ട്രേലിയ പെറു ഡെൻമാർക്ക് ഫ്രാൻസ് മത്സരം അൽപസമയത്തിനകം ആരംഭിക്കും

ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എ ഐ ഐ ബിയുടെ മൂന്നാമത് വാർഷിക ഉദ്ഘാടനം യോഗം മുംബൈയിൽ ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നിക്ഷേപകർ എന്നും ഒരു രാജ്യത്തിന്റെ വളർച്ച സാമ്പത്തിക രാഷ്ട്രീയ സുസ്ഥിരത തങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് സുരക്ഷ ഉറപ്പ് വരുത്താനാവശ്യമായ സംവിധാനങ്ങളുടെ പ്രവർത്തനം എന്നിവയ്ക്കാണ് ഊൌന്നൽ നൽകുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു ബൃഹത്തായ ആഭ്യന്തര വാണിജൃ മേഖല നൈപുണൃമുള്ള തൊഴിലാളികളുടെ ലഭൃത അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ നിക്ഷേപകരെ മികച്ച ആകർഷിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു

അടിയന്തിരാവസ്ഥയ്ക്കെതിരെ പടപൊരുതിയവർക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ബി ജെ പി മുംബ്ലൈയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുകയ്ായിരുന്നു പ്രധാനമന്ത്രി ഭരണഘടനയെ സംരക്ഷിക്കുന്ന്തിനെപ്പറ്റി സംസാരിച്ചവർ തന്നെ അടിയന്തിരാവസ്ഥ കാലൂത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെയെല്ലാം ജയിലിൽ അടച്ച് ഒരു കുടുംബത്തിന് വേ ി രാജ്യത്തെ ഒരു ജയിലാ്ക്കി മാറ്റിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിഷന്റെയും വോട്ടിംഗ് യന്ത്രത്തിന്റെയും പ്രവർത്തനത്തിൽ തകരാറുകൾ ക ത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെ പ്രധാനമന്ത്രി വിമർശിച്ചു കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത പരാജയമാണ് കോൺഗ്രസിന്റെ വിമർശനങ്ങൾക്ക് പിന്നിലെന്നും ശ്രീ മോദി പറഞ്ഞു

ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി അനിൽ ജെയിൻ ദിനാചരണത്തിന് നേതൃത്വം നൽകി

അധികാരത്തിൽ തുടരാൻ കോൺഗ്രസ് നേതൃത്വം എല്ലായിപ്പോഴും രാജ്യതാൽപര്യങ്ങൾക്ക് വില കൽപിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

കഴിഞ്ഞ നാലുവർഷത്തെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ വിവരിക്കെ കേന്ദ്രമന്ത്രി താവർചന്ദ് ഗെലോട്ട് അറിയിച്ചതാണ് ഇക്കാരൃം ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമെങ്കിൽ പാർലമെന്റിനെ സമീപിക്കുമെന്നും നിയമം അതേപടി നിലനിർത്താൻ ഓർഡിനൻസ് കൊ ു വരാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംവരണത്തിന് ഗവൺമെന്റ് അനുകൂലമാണെന്നും അതിൽ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ശ്രീ ഗെലോട്ട് വൃക്തമാക്കി സംവരണ തത്വങ്ങൾ പാലിച്ച് പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് സ്ഥാന കയറ്റം നൽകുന്നതിനോട് നരേന്ദ്രമോദി ഗവൺമെന്റിന് യോജിപ്പാണെന്നും അദ്ദേഹം വൃക്തമാക്കി സുപ്രിംകോടതി ഉത്തരവ് പ്രകാരം എല്ലാ വകുപ്പുകളും സംസ്ഥാന ഗവൺമെന്റുകളും ഇത് നടപ്പിലാക്കണമെന്നും ശ്രീ ഗെലോട്ട് ആവശ്യപ്പെട്ടു

പേഴ്സണൽ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത്

ഓവർടൈം അലവൻസ് ബയോമെട്ട്രിക്ക് ഹാജർ നിലയുമായി ബന്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടു പ് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള എല്ലാ മന്ത്രാല്യങ്ങളിലും വകുപ്പുകളിലും മറ്റ് ഓഫീസുകളിലും തീരുമാനും നടപ്പിലാക്കും മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം വിവ്വിധ മന്ത്രാലയങ്ങളോടും വകുപ്പുകളോടും ഓപ്പറേഷണൽ സ്റ്റാഫ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തേ വരെ സംബന്ധിച്ച കൃത്യമായ ലിസ്റ്റ് തയാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടു ് ഒരു സ്ഥാപനത്തിലെ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഗസറ്റഡ് വിഭാഗത്തിൽപ്പെടാത്ത നോൺ മിനിസ്റ്റീരിയലായ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരും ഓപ്പറേഷണൽ സ്റ്റാഫിന്റെ പരിധിയിൽ വരും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗുണഭോക്താക്കളുടെ അനുഭവങ്ങളും അവരുടെ ജീവിതപ്രയാണം സംബന്ധിച്ച വിവരണങ്ങളും കേൾക്കാൻ കാതോർത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ അറിയിച്ചു

അവസാനങ്ങൾ മയക്കു മരുന്നിന് അടിമപ്പെടുന്നത് ദാരിദ്ര്യം വളർത്തുന്നതായും ദേശീയ സുരക്ഷയ്ക്കും പൊതുക്ഷേമ വിക്സന പദ്ധതികൾക്കും എതിരെ വെല്ലുവിളി ഉയർത്തുന്നതിായും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ന്യൂഡൽഹിയിൽ ല്ഹിരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണ്ട് ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി

അതിർത്തി മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന മയക്ക് മരുന്ന് കടുത്തലും മയക്ക് മരുന്ന് ഉപയോഗവും തീവ്രവാദവുമായും രാഷ്ട്രീയ അശാന്തിയുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു

ആപ്പിൽ അപേക്ഷകൻ നൽകിയു പ്രിലാസത്തിൽ പോലീസ് വെരിഫിക്കേഷൻ നടത്തും അതേ വിലാസത്തിൽ തന്നെ പാസ്പോർട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യും ജനന്മയ്ക്കായി പാസ്പോർട്ട് സേവനങ്ങൾ ലളിതവത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇൌ നടപടിയെന്നും അവർ അറിയിച്ചു

ഇതിനായി എല്ലാ ചെക്ക് പോസ്റ്റുകളിലും പരിശോധന കർശനമാക്കൂന്നതോടൊപ്പം വിപണികളിലും പരിശോധന നടത്തൂം എറണാകുളത്തെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ പേപ്പർ സ്ട്രിപ്പ് ഉയോഗിച്ച് പ്രാഥമിക പരിശോ ധന നടത്തുമ്പോൾ ഫോർമാലിന്റെ അളവ് ക ത്തിയാൽ ഉടൻ തന്നെ കേസെടുക്കുന്നതാണ്

വിശദാംശങ്ങളുമായി അന്നിൽകുമാർ വോയിസ് അൽപം മുമ്പ് ആരംഭിച്ച ലോകകപ്പിലെ ഗ്രൂപ്പ് സി മത്സരത്തിൽ ഓസ്ട്രേലിയ പെറുവിനെ നേരിടുന്നു

ജയിക്കുകയോ സമനിലയിലെത്തുകയോ ചെയ്താൽ അവർക്ക് ഗ്രൂപ്പ് ജേതാക്കളാകാം തോറ്റാൽ ഡെന്മാർക്ക് ആയിരിക്കും ഗ്രൂപ്പ് ജേതാക്കൾ

ഇതേസമയം തന്നെ റോസ്തോവ് അരീന സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം ഐസ്ലന്റും ക്രൊയേഷ്യയും തമ്മിലാണ്